പിൻമാറ്റത്തിന് ഊന്നൽ നൽകി ഇന്ത്യയും ചൈനയും നയതന്ത്ര സൈനികതല ചർച്ചകൾ തുടരും

വന്ദേ ഭാരത് ദൌതൃത്തിന്റെ നാലാം ഘട്ടത്തിന് നാളെ തൂടക്കം

ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന സൈനിക നയതന്ത്രതല ചർച്ചകളിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്

സൈനികതലത്തിലും ഇന്ത്യൻ കരസേനയുടെയും പീപ്പിൾ ലിബറേഷൻ ആർമിയുടെയും കമാൻഡർമാർ ഇന്നലെ ചുസൂളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ലഫ്റ്റനന്റ് ജനറൽ തലത്തിലുള്ള ചർച്ചയാണ് ഇന്നലെ നടന്നത്

ഇന്ത്യൻ വിദേശകാരൃ മന്ത്രി എസ്

അതിനിടെ ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കിഴക്കൻ ലഡാക്കിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ്ങും സൈനിക മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയും നാളെ ലേ സന്ദർശിക്കും

പ്രധാന്റ്മിന്തി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദ്ദേശ്രീയ അധ്യക്ഷൻ ജെ

നദ്ദ കേന്ദ്രമന്ത്രി നരേന്ദ്രസിങ്ങ് തോമർ എണ്ണീവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി

ഈ പദ്ധതിയ്ക്ക് കീഴിൽ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോഗ്രാം ഗോതമ്പ് അല്ലെങ്കിൽ അരി ഓരോ കുടുംബത്തിനും ഒരു കിലോഗ്രാം കടല എന്നിവ അഞ്ച് മാസത്തേയ്ക്ക് കൂടി സൌജന്യമായി നൽകും

ഇന്ത്യയുടെ ത്രീരുമാനം ദേശസുരക്ഷയ്ക്ക് വലിയ സഹായമാകുമെന്ന് വ്വിദ്ദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞു

ഇന്ത്യയുടെ സമഗ്രതയും ദേശീയ സുരക്ഷയും പ്രാജ്ഞ നടപടിയിലൂടെ വർധിക്കുമെന്നും പോംപിയോ മാധ്യമങ്ങളോട് പറഞ്ഞു

ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്ര ആരോഗ്യ മന്താലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശൃങ്ങൾക്കും കത്തയച്ചു

സി എം

രോഗനിയന്ത്രണത്തിന് പരിശോധനയും ചികിത്സയും ഊർജിതമാക്കണം

പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗനിർണയം നടത്തിയാൽ വ്യാപനം തടയാനാകും പരിശോധനയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ചില വ്യവസ്ഥകൾ നീക്കണമെന്ന് ആവശ്യമുണ്ട്

സ്വകാര്യ ലാബുകളിൽ ആർ

സി

പരിശോധനാഫലം ഐ സി എം

രാജ്യത്ത് കോവിഡ് നിർണ്ണയം നടത്തുന്ന ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു വരുന്നതായും കത്തിൽ വൃക്തമാക്കുന്നു

ഐ ബാലകൃഷ്ണൻ കോൺസ്റ്റബിൾ മുത്തുരാജ് എന്നിവരാണ് ഇന്ന് പൂലർച്ചെ അറസ്റ്റിലായത്

ഇന്നലെ രാത്രിയിൽ സബ് ഇൻസ്പെക്ടർ രഘു ഗൃദ്ധ്യൂൾ് ഹെഡ് കോൺസ്റ്റബിൾ മുരുകൻ എന്നിവരെ ക്രൈംബ്ലാഞ്ച് സി ഐ

ഭീകരവിരുദ്ധ നിയമപ്രകാരം ആഭൃന്തര മന്ത്രാലയം ആണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് വാധ്വാസിംഗ് ബബ്ബാർ ലബ്ബീർ സിംഗ് രൺജീത് സിംഗ് എന്നിവരാണ് ഇതിലെ പ്രമുഖർ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്നവരാണ് ഇവരിൽ പലരും

നിരവധി റോഡുകളും കെട്ടിടങ്ങളും തകർന്നു

ബിൽ തയ്യാറാക്കിയതിൽ അശാസ്ത്രീയത ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജികൾ നൽകിയിരുന്നത് എന്നാൽ ഉപയോഗിച്ച വൈദ്യുതിക്കാണ് ബിൽ നൽകിയതെന്ന കെ എസ്

ബി യുടെ വാദം ഹൈക്കോടതി ശരിവച്ചു

മെക്സിക്കൻ നഗരമായ ഇരപാട്ടോയിലാണ് വെടിവയ്പുണ്ടായത് സംഭവത്തിൽ നിരവധിപ്പേർക്ക് പരിക്കേറ്റതായി മെക്സിക്കൻ സിറ്റിസൺ സെക്യൂരിറ്റി അധികൃതർ അറിയിച്ചു

ഏകകണ്ഠമായാണ് കൌൺസ്റ്റീൽ പ്രമേയം പാസ്സാക്കിയത്